മാലിനൃത്തിൽ നിന്ന് വൈദ്യൂതി ഉൽപാദിപ്പിക്കുന്ന പദ്ധതി യുടെ നിർമ്മാണ പ്രവൃത്തി മുഖൃമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് കോഴിക്കോട് ഞെളിയൻ പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും

ഇന്ന് കൊച്ചിയിൽ തങ്ങുന്ന അദ്ദേഹം നാളെ ലക്ഷദ്വീപിലെ അഗത്തി യിലേക്ക് പോകും

രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്ന് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി മുൻ ഉപ പ്രധാനമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവു മായ എൽ

അദ്ധാനിയും ഇന്ന് കൊച്ചി സന്ദർശിക്കും ഡൽഹി ജെ എൻ യു വിൽ അക്രമസംഭവങ്ങളുണ്ടായ പശ്ചാ ത്തലത്തിൽ കേന്ദ്ര മാനവ ശേഷി വികസന മന്ത്രാലയം വൈസ് ചാൻസലർ ഉൾപ്പെടെ സർവ്വകലാശാല അധികൃതരുടെ അടിയ ന്തര യോഗം വിളിച്ചു സംഭവത്തെ കുറിച്ച് ജെ എൻ യു രജി സ്ട്രാർ പ്രമോദ് കുമാറിനോട് മന്ത്രാലയം അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ജെ എൻ യു പ്രതിനിധികളുമായി ചർച്ച നട ത്താൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലിനോട് ആവശ്യപ്പെട്ടു

അതേസമയം യൂണിവേഴ്സിറ്റി കൃാമ്പസിലെ സ്ഥിതി സാധാ രണ ഗതിയിലാണെന്ന് പൊലീസ് അറിയിച്ചു ക്യാമ്പസിൽ പൊലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി

ഗവൺമെന്റിന്റെയും ജെ എൻ യു അധികൃതരുടെയും ഡൽഹി പൊലീസിന്റെയും കൺമുന്നിൽ ജെ എൻ യു വിൽ അക്രമസംഭവങ്ങളുണ്ടായത് അപമാനകരമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി

ജവഹർലാൽ നെഹ്റു സർവ്വകലാശാലയിൽ മുഖം മൂടി സംഘം നടത്തിയ ആക്രമണത്തെ മുഖ്യമന്ത്രി പിണറായി വിജ യൻ അപലപിച്ചു വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടാകുന്ന കടന്നാ ക്രമണം അസഹിഷ്ണുതയുടെ അഴിഞ്ഞാട്ടമാണെന്നും നാസി മാതൃകയിൽ ആക്രമിച്ചവർ രാജ്യത്ത് അരക്ഷിതാവസ്ഥയും കലാ പവും സൃഷ്ടിക്കാൻ ഇറങ്ങിയവരാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെ ടുത്തി ജെ എൻ യു വിലെ ആക്രമണം ആസൂത്രിതമായ ഗൂഢാലോ ചനയുടെ ഭാഗമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരു വനന്തപുരത്ത് പറഞ്ഞു കോൺഗ്രസും ഇടതുസംഘടനകളും ചേർന്ന് തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിച്ച് കലാലയങ്ങളിൽ മുഴുവൻ കലാഹ്മാണെന്ന് വരുത്തി തീർക്കുകയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ജെ എൻ യു വിൽ കോൺഗ്രസും ഇടതു സംഘടനകളും നടത്തിയ ആക്രമണങ്ങളെ വെള്ള പൂശുന്ന വ്യാജ വാർത്തകളാണ് കേരളത്തിലെ മാധൃമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ദേശീയ മാധ്യമങ്ങൾ സത്യം പറയുമ്പോൾ മലയാള മാധ്യമങ്ങൾ പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ജെ എൻ യു വിദ്യാർത്ഥികൾക്കു നേരെ നടന്ന ആക്രമണം ക്രൂരവും പ്രതിഷേധാർഹവുമാണെന്ന് മുതിർന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു ഈ കടന്നാക്രമണം രാജ്യ ത്തിന് തീർത്താൽ തീരാത്ത അപമാനമാണ് വരുത്തിയിരിക്കുന്ന തെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു രാജ്യത്തെ കലുഷിതമായ അന്തരീക്ഷം വല്ലാതെ യുവതയെ മഥിക്കുന്നുണ്ടെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡൻറ് ലീഡേഴ്സ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്നലത്തെ സംഭവങ്ങളിൽ പലർകും അമർഷവും പ്രതിഷേധവും ഉണ്ടെന്ന് അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള നിർമാണം കുറ്റമറ്റതാക്കാനാണ് വിദ്യാർഥികളുമായി സംവദിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മന്തി ഡോ

ടി ജലീൽ അധ്യക്ഷനായിരുന്നു മാലിനൃത്തിൽ നിന്ന് വൈദ്യൂതി ഉൽപാദിപ്പിക്കുന്ന സംയോജിത മാലിന്യസംസ് കരണ പദ്ധതി നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകീട്ട് കോഴിക്കോട് ഞെളിയൻ പറമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിക്കും ദക്ഷിണേന്തൃയിലെ ആദ്യത്തേയും ഇന്തൃയിലെ അഞ്ചാമത്തെയും പ്ലാന്റാണിത്

ഇതുവഴി അഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉല്പ്പാദിപ്പി ക്കാനാണ് ലക്ഷ്യമിടുന്നത് കോഴിക്കോട് നഗരസഭയും സമീപ് മുൻസിപ്പാലികളും ഗ്രാമപഞ്ചായത്തുകളും പദ്ധതിയുടെ ഭാഗമാകും ദ്ധിതീയ മാലിന്യം പ്രത്യേക രീതിയിൽ ഈർപ്പ രഹിതമാക്കി ജലനാധിഷ്ഠിത പ്താന്റിലേക്ക് കടത്തിവിട്ട് മീഥെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കും ഇത് ജലനാധിഷ്ഠിത പ്ലാന്റിലേക്ക് ഖരമാലിന്യ ങ്ങൾക്കൊപ്പം ചേർത്ത് കത്തിക്കുന്നു ഇതിൻ നിന്ന് ടർബൈൻ പ്രവർത്തിക്കാനാവശ്യമായ നീരാവി ഉണ്ടാവുകയും ടർബൈന്റെ പ്രവർത്തനം വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഈ വൈദ്യുതി നല്പളം സബ് സ്റ്റേഷൻ വഴി കെ എസ് ഇ ബിയ്ക്ക് വിൽക്കാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതി

ജയരാജൻ അറിയിച്ചു കൂടുതൽ നിക്ഷേപകരെ സംസ്ഥാന ത്തേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യമാണ് അസന്റ് മുന്നോട്ടു വയ്ക്കുന്നതെന്ന് മന്ത്രി ഫേസ് ബുക്കിൽ അറിയിച്ചു കേരളത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ എന്ന ആശയത്തിൽ ഊന്നിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറ ഞ്ഞു വൃവസായ രംഗത്തെ വളർച്ച മുൻനിർത്തി പുത്തൻ ആശ യങ്ങൾ വികസിപ്പിച്ചെടുത്ത് അതിൽ നിക്ഷേപിക്കാൻ സംരംഭ കർക്ക് അസന്റ് അവസരമൊരുക്കും

കഴിഞ്ഞ വർഷം നടത്തിയ അസന്റിന്റെ ഒന്നാം പതിപ്പ് വൻവിജയമായിരുന്നു വെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടു മുൻ കംപ്ട്രോളർ ആൻ് ഓഡിറ്റർ ജനറലും കർണാടക ഗവർണറുമായിരുന്ന ടി എൻ ചതുർവേദി നോയിഡയിൽ അന്ത രിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാ ഷ്ട്രപതി വെങ്കയ്യ നായിഡുവും ടി എൻ ചതുർവേദിയുടെ നിര്യാ ണത്തിൽ അനുശോചിച്ചു

ബി എം എസ് ഒഴികെ എല്ലാവരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സി ഐ ടി യു സംസ്ഥാന പ്രസി ഡണ്ട് ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്ത് അറിയിച്ചു ശബരിമല തീർത്ഥാടകരെയും ആശുപത്രി വിനോദ സഞ്ചാരമേ ഖലയെയും പാൽ പത്രം തുടങ്ങി മറ്റ് അവശ്യ സർവീസുക ളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

വടകര കണ്ണുക്കരയിൽ വാഹനാപകടത്തിൽ മൂന്ന് മരണം പുലർച്ചെ മൂന്ന് മണിക്ക് കാറും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശികളായ പത്മനാഭൻ നമ്പൂതിരി അനിത ശ്രാവൺ എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കാർ ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ചാലപ്പുറം സ്വദേശിനി ഫസ്ന മക്കളായ റിസ നസ്റിൻ ആമിന നസ്റിൻ എന്നിവരാണ് മരിച്ചത് ഗായകനും സംഗീതാധ്യാപകനുമായ സിറിയക് സൈമൺ കൽപ്പറ്റയിൽ നിര്യാതനായി

നടവയൽ സെന്റ് തോമസ് ഹയർ സെക്കണ്ടറിയിൽ സംഗീതാധ്യാപകനും ആകാശവാണി ആർട്ടിസ്റ്റുമാണ് സംസ്കാരം നാളെ മൂന്ന് മണിക്ക് സീതാമൌണ്ട് സെന്റ് ജോസഫ്സ് പള്ളി സെമിത്തേരിയിൽ

ഗുവാഹത്തിയിൽ ഇന്നലെ ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു പിച്ചിൽ ഈർപ്പം കാരണം കളിക്കാൻ കഴിയില്ലെന്ന് അമ്പയർമാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഒരു പന്തുപോലും എറിയാതെ കളി ഉപേക്ഷിച്ചത് വെള്ളിയാഴ്ച പൂനെയിലാണ് അവസാന മത്സരം കർണാടകയിലെ മൂഡബിദ്രിയിൽ അന്തർസർവകലാശാല അത്ലറ്റിക് മീറ്റ് ഇന്ന് സമാപിക്കാനിരിക്കെ ്കിരീട്ട് ഉറപ്പാക്കി ആതിഥേയരായ മംഗളൂരു സർവ്വകലാശാല ബഹുദൂരം മുന്നിൽ

അഖില കേരള ഇന്റർ കോളേജിയറ്റ് വോളിബോൾ ടൂർണ്ണ മെന്റ് കാരന്തൂർ പാറ്റേൺ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച ആരംഭിക്കും

ചതുർദിന ടൂർണ്ണമെന്റിൽ വിവിധ ടീമുകൾക്കായി ദേശീയ താര ങ്ങളും കോർട്ടിലിറങ്ങുമെന്ന് ഭാരവാഹികൾ കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വോളിബോൾ പ്രേമികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണ്ണമെന്റ് സംഘടിപ്പിക്കുന്നത് കായിക താരങ്ങളെ സംരക്ഷിക്കുന്നതിന് വിവിധ വകുപ്പുകളിൽ സൃഷ്ടിച്ച സൂപ്പർ ന്യൂമറി തസ്തികയിലേക്ക് പ്രവേശനം അടുത്തമാസം ആരംഭിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു

കണ്ണൂർ പയ്യന്നൂർ കണ്ടോത്ത് കിസാൻ കൊവ്വൽ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ യു

എഫ് നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായി എം കെ ്രാഘവൻ എം പി നയിക്കുന്ന ലോംഗ് മാർച്ച് വൈകീട് മൂന്നിന് കൊടുവള്ളിയിൽ കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കുന്ദമംഗലത്ത് നടക്കുന്ന ആദ്യ ദിവസത്തെ പര്യടനത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും